ത കോർപ്പറേഷൻ നഗരസഭ പരിധിയിൽ ചെറിയ കടകളും പാർപ്പിട സമുച്ചയങ്ങളിലെ കടകളും തുറക്കാൻ ഗവൺമെന്റ് അനുമതി നൽകി

വയനാട് തൃശൂർ ആലപ്പുഴ ജില്ലകളിൽ ആരും ചികിത്സയിലില്ല

തിലോത്തമൻ

ഇത്തരം പ്രദേശങ്ങളിൽ കൂടുതൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് വാഹന മുതിർന്ന പരിശോധന കർശനമാക്കും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പട്രോളിംഗ് ശക്തിപ്പെടുത്തും അവശ്യസാധനങ്ങൾ പോലീസ് വാങ്ങി വീടുകളിൽ എത്തിക്കും മറ്റു ജില്ലകളിലെ ഹോട്ട്സ്പോട്ട് മേഖലകൾ സീൽ ചെയ്ത് പ്രവേശനം ഒരു വഴിയിൽ കൂടി മാത്രമാക്കി ഇത്തരം സ്ഥലങ്ങളിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പരിശോധനയ്ക്കു നിയോഗിച്ചിട്ടുണ്ട് രുമ കോർപ്പറേഷൻ നഗരസഭ പരിധിയിൽ ചെറിയ കടകളും പാർപ്പിട സമുച്ചയങ്ങളിലെ കടകളും ഒറ്റപ്പെട്ട കടകളും തുറക്കാൻ ഗവൺമെന്റ് അനുമതി നൽകി

കോട്ടയത്തും കൊല്ലത്തും മൂന്ന് വീതവും കണ്ണൂരിൽ ഒരാൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്

കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ രണ്ട് വീതവും വയനാട്ടിൽ ഒരാളുമാണ് രോഗമുക്തരായത്

രേര വയനാട് തൃശൂർ ആലപ്പുഴ ജില്ലകളിൽ നിലവിൽ ആരും ചികിത്സയിൽ ഇല്ല

കോഴിക്കോട് ഒരു കണ്ണൂർ സ്വദേശിയും കണ്ണൂരിൽ ഒരു കാസർകോട് സ്വദേശിയും ചികിത്സയിലുണ്ട്

ശാസ്താംകോട്ടയിലെ ഏഴു വയസ് പ്രായം വരുന്ന കുട്ടിയാണ് കോവിഡ് സ്ഥിരീകരിച്ചവരിൽ ഒരാൾ

തെങ്കാശി പുളയൻകുടിയിൽ സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ച കുളത്തുപ്പുഴ സ്വദേശിയുടെ സുഹൃത്താണ് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച മറ്റൊരാൾ ചാത്തന്നൂർ സ്വദേശി ആശാ വർക്കറാണ് രോഗം സ്ഥിരീകരിച്ച മൂന്നാമത്തെയാൾ ഇവർക്ക് രോഗം വന്ന വഴി അന്വേഷിച്ചു വരുന്നു രുമ കൊല്ലം ജില്ലയിലെ തൃക്കോവിൽവട്ടം ശാസ്താംകോട്ട പോരുവഴി ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തുകളിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ ബി അബ്ദുൽ നാസർ നിരോധനാജ്ഞ ഏർപ്പെടുത്തി

ലോക് ഡൌൺ കാലാവധി തീരുന്ന മെയ് മൂന്ന് വരെ നിലനിൽക്കുന്ന ഇളവുകളാണ് ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചത്

ഇയാളുമായി സമ്പർക്കം പുലർത്തിയ വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ അമ്പതോളം പേരെ നിരീക്ഷണത്തിലാക്കി രുമ കോവിഡ് ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മൂന്ന് പേരുടെ രോഗം ഭേദമായി കോഴിക്കോട് എടച്ചേരി സ്വദേശികളായ രണ്ട് പേരും കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയുമാണ് രോഗമുക്തരായത്

രേര കൊവിഡ് രോഗികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിൽ ഇന്നു മുതൽ സമ്പൂർണ ലോക്ക് ഡൌൺ ഏർപ്പെടുത്തും ചെന്നൈ മധുര കോയമ്പത്തൂർ നഗരങ്ങളിൽ ഇന്നു മുതൽ നാല് ദിവസത്തേയ്ക്ക് ശക്തമായ ലോക്ക് ഡൌണും സേലം തിരുപ്പൂർ നഗരങ്ങളിൽ മൂന്ന് ദിവസത്തെ ലോക്ക് ഡൌണുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്

ഇതേതുടർന്ന് കേരളത്തിലെ അതിർത്തി ജില്ലകളിൽ പരിശോധന ശക്തമാക്കും

നാളെ മുതൽ സംസ്ഥാനത്തിന്റെ ഭക്ഷ്യ കിറ്റ് വിതരണം ആരംഭിക്കും ജനപ്രതിനിധികൾ സാക്ഷ്യപെടുത്തിയ സത്യവാങ്മൂലം സമർപ്പിച്ചാൽ റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും ഭക്ഷ്യ കിറ്റ് നൽകുമെന്നും മന്ത്രി പറഞ്ഞു

രേര ചെറുകിട ഇടത്തരം സൂക്ഷ്മ സംരഭങ്ങളുടെ പുനരുദ്ധാരണത്തിന് സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയ്ക്ക് കത്തയച്ചു

പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ മലയാള പരിഭാഷ പ്രക്ഷേപണം ചെയ്യും

രുമ എറണാകുളം ജില്ലയിലെ മാർക്കറ്റുകളിൽ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തും ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി വി

ഇതനുസരിച്ച് എറണാകുളം മാർക്കറ്റിൽ ചരക്കുകൾ ഇറക്കുന്നത് രാത്രി ഒന്നിനും രാവിലെ ആറിനും ഇടയിൽ നിജപ്പെടുത്തും